സി സി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യാഴാഴ്ച ചുമതലയേൽക്കും

് ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ഇന്ന് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ഓരോ വർ ഷവും രാജ്യത്തെ പത്ത് കോടി കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി

ഗുണഭോക്താക്കൾ നേരിട്ട് പണമോ രേഖ കളോ നൽകേണ്ട സാഹചര്യം ഒഴിവാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്

കന്യാസ്ത്രീ പീഡനക്കേസിൽ പൊലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ബിഷപ്പ് ഫ്രാ ങ്കോ മുളയ്ക്കലിനെ കുറവിലങ്ങാട്ടെ മഠത്തിലെത്തിച്ച് തെളിവെടുത്തു കോട്ട യം പൊലീസ്ക്ലബ്ബിൽ നിന്നാണ് ബിഷപ്പിനെയും കൊണ്ട് അന്വേഷണ സം ഘം മഠത്തിലെത്തിയത് തെളിവെടുപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു നാളെ ഉച്ച യ്ക്ക് രണ്ടര വരെയാണ് ബിഷപ്പിനെ കോടതി പൊലീസ് കസ്റ്റഡിയിൽ വിട്ടിരി ക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഹർജി നൽകിയേക്കും പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ചോദ്യംചെയ്യലുമായി ഫ്രാങ്കോ മുളയ്ക്കൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് പൊലീസ് നുണപരിശോധന ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡനക്കേസിൽ സാക്ഷികളെ സ്വാ ധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കൂടുതൽ അറസ്റ്റുണ്ടായേക്കുമെന്ന് സൂചന ലഭിച്ചു

ജെയിംസ് എർത്തയിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നട പടിയുണ്ടാകുമെന്നാണ് പിവരം ഇക്കാര്യത്തിൽ ഒരാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദേശം നൽകിയതായി കോട്ടയം പൊലിസ് സൂപ്രണ്ട് വൃക്തമാക്കി പീഡനക്കേസിൽ ഫ്രാങ്കോമുളയ്ക്കലിനെതിരായ കന്യാസ്ത്രീകളുടെ സമരത്തെ പിന്തുണച്ച മാനന്തവാടി രൂപതയിലെ സിസ്റ്റർ ലൂസി കളപുരയ്ക്കലിനെ വേദപാഠം കുർബാന എന്നിവ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയതായി റിപ്പോർട്ട് രൂപത വികാരിയുടെ നിർദേശപ്രകാരം മദർസുപ്പീരിയറാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് സിസ്റ്റർ ലൂസി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു കോഴിക്കോട്ട് നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തിയ നടൻ ജോയ് മാത്യു അടക്കം കണ്ടാലറിയാവുന്ന നൂറോളം പേർക്കെതിരെ പൊലീസ് കേസെടുത്തു കന്യാസ്ത്രീ സമരത്തെ അനുകൂലിച്ച് പ്രകടന വിരുദ്ധ മേഖലയായ കോഴിക്കോട് മിഠായ്തെരുവിൽ കഴിഞ്ഞ ദിവസം പ്രകടനം നടത്തിയതിനാണ് നടപടി സംസ്ഥാനത്ത് പവർകട്ട് ഒഴിവാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു

കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കേണ്ട വൈദ്യുതി പൂർണമായും ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്ര ട്ടറിയേറ്റിലെ ഓഫീസിലെത്തി

പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം നാളെ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് വിവരം കെ

സി പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യാഴാഴ്ച സ്ഥാനമേൽക്കും ഹൈക്കമാന്റ് പുതിയതായി നിയമിച്ച മറ്റു നേതാക്കളും തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ എത്തി സ്ഥാനമേറ്റെടുക്കും റഫേൽ യുദ്ധ വിമാന നിർമാണത്തിൽ ഡെസോ കമ്പനിയുടെ ഇന്ത്യൻ പങ്കാ ളിയായി റിലയൻസിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യൻ ഗവൺമെന്റോ ഫ്ര ഞ്ച് ഗവൺമെന്റോ ഇടപെട്ടിട്ടില്ലെന്ന് ധനമന്ത്രി അരുൺജയ്റ്റ്ലി വൃക്തമാക്കി റിലയൻസിനെ ഇന്ത്യൻ പങ്കാളിയാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് താൽപര്യം കാ ണിച്ചുവെന്ന മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഫ്രാങ്കോ ഒലാങ്കിന്റെ വിവാദ പരാമർശ ത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുൻപ്രസിഡന്റിന്റെ പ്രസ്ഥാവന ശരിയല്ലെന്ന് ഫ്രഞ്ച് ഗവൺമെന്റും ഡെസോ ഏവിയേഷനും വ്യക്തമാക്കിയി ട്ടുണ്ടെന്നും ജയ്റ്റ്ലി ഡൽഹിയിൽ പറഞ്ഞു ഡെസോ കമ്പനിയാണ് ഇന്ത്യൻ പങ്കാളിയെ തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശ ദീകരിച്ചു മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികളിൽ ദോഷകരമായ ഫലമുണ്ടാക്കിയാൽ ഉൽപാദകർ സാമ്പത്തികാശ്വാസം നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവരാൻ ഗ വൺമെന്റ് ആലോചിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

വി തുരായ കണ്ടെ ത്തിയത് എന്നാൽ കപ്പൽ ഉപയോഗിച്ച് മാത്രമേ പായ് വഞ്ചിക്ക് സമീപം എ ത്താനാവൂവെന്ന് നാവികസേന വക്താവ് അറിയിച്ചു

മരുന്നും ഭക്ഷണവും എത്തിക്കാൻ നാവികസേനശ്രമിച്ചു വരികയാണ് ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ പൊലീസും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമൂട്ടൽ തുടരുന്നു ഭീകരപ്രവർത്തകർ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാസേന സ്ഥലത്ത് തെരച്ചിലാരംഭിക്കുകയായിരുന്നു സംഘത്തിനു നേരെ ഭീകരർ വെടിവെച്ചതിനെ തുടർന്നായിരുന്നു പ്രത്യാക്രമണം കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്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

ദുബായിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സരം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 ഗ്രൂപ്പ് റൌണ്ടിൽ ഇന്ത്യ പാക്കിസ്ഥാനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു സൂപ്പർഫോറിലെ മറ്റൊരു മത്സരത്തിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മലപ്പുറവും കോഴിക്കോടും തമ്മിൽ ഏറ്റുമുട്ടും

ശക്തികുളങ്ങര ഹാർബർ വികസന പദ്ധതിക്ക് അടുത്ത വർഷം ജനുവരിയിൽ തറക്കല്ലിടാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയ മ്മ പറഞ്ഞു

കൊല്ലം കലക്ട്രേറ്റിൽ ശുചിത്വ സാഗരം പദ്ധതി പ്രവർ ത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കടലിൽനിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ശുചിത്വ സാഗരം പദ്ധതി യുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ യോഗം തീരുമാനിച്ചു കാലവർഷക്കെടുതിയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്രസംഘം മലപ്പുറം ജില്ലയിൽ സന്ദർശനം തുടങ്ങി പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ നിലമ്പൂർ കരുവാരക്കുണ്ട് മേഖലകൾ സംഘം സന്ദർശിക്കും പ്രളയ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കൊല്ലം ജില്ല യിലും സന്ദർശനം നടത്തും കടലാക്രമണമുണ്ടായ ഇരവിപുരം മേഖലയിലും പ്രളയം ബാധിച്ച മൺറോത്തുരുത്തിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ പ വിത്രേശ്വരത്തും സംഘം സന്ദർശനം നടത്തും പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിച്ച അർഹരായവർക്ക് മാത്രമേ ധനസഹായം ലഭ്യമാകുന്നുള്ളുവെന്ന് ഉറപ്പ് വരുത്തണമെന്ന് സുരേഷ്ഗോപി എം

ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ജാഗ്രത അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ സേവാഭാരതി സംഘടിപ്പിച്ചു പ്രളയക്കെടുതിയിൽ പങ്കെടുത്തവർക്കുള്ള അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഉൽപാദനം നിലച്ച ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനം നാളെ പുനരാരംഭിക്കും ഇതിന്റെ ട്രയൽ റൺ ഇന്ന് ആരംഭിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് അറിയിച്ചു

കനത്തമഴയെതുടർന്ന് ഷോളയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ നിർദേശം പെരിങ്ങൽകുത്ത് അണക്കെട്ടിലേക്കാണ് വെള്ളമെത്തുക ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ഇരുകരയിലുമുള്ളവർ ജാഗ്രത പാ ലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പ്രളയത്തിൽ നഷ്ടമായ സർടിഫിക്കറ്റുകൾ നൽകാൻ മലപ്പുറം ജില്ലാ ഭരണകൂടം സംസ്ഥാന ഐ ടി മിഷന്റെ സഹകരണത്തോടെ നടത്തുന്ന അദാലത്തിന് നാളെ ഏറനാട് താലൂക്കിലെ ഊർങ്ങാട്ടേരിയിൽ തുടക്കമാവും സർടിഫിക്കറ്റുകൾ നൽകുന്നതിന് ബന്ധപ്പെട്ട വകുപ്പൂകൾ പങ്കെടുക്കും കണ്ണൂർ ശ്രീകണ്ഠപുരത്തിനടുത്ത് എരുവേശ്ശിയിൽ വീട് കേന്ദ്രീകരിച്ച് സമാന്തര ബാർ നടത്തിയ യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു മൊയിപ്രയിലെ സുനീഷാണ് പിടിയിലായത്

നീലക്കുറിഞ്ഞി കാണാൻ ഇടുക്കി രാജമലയിൽ എത്തുന്ന സഞ്ചാരികൾക്കായി ടിക്കറ്റ് കൌണ്ടറുകൾ നാളെമുതൽ പ്രവർത്തനം തുടങ്ങും പഴയ മൂന്നാർ ഹൈഡൽ ഉദ്യാനത്തിലും മറയൂർ കരിമുട്ടിയിലുമാണ് ടിക്കറ്റ് കൌണ്ടർ